ആറ്റുകാൽ പൊങ്കാലയിൽ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ

ഇന്നത്തേക്ക് പിരിഞ്ഞു ബുധനാഴ്ച വീണ്ടും സമ്മേളിക്കും

വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും

ആരോഗ്യു സ്പെഷ്യൽ സെക്രട്ടറി സഞ്ജീവ് കുമാറാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്

വൈറസിനെ നിയന്ത്രിക്കാൻ പല രാജ്യങ്ങളും മതിയായ നടപടികൾ കൈക്കൊള്ളുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി

ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്ന പ്ലക്ഷർ മതിയായ പ്രതിരോധ മാർഗ്ഗങ്ങൾ ഉറപ്പുവരുത്തണള്മെന്നും കേന്ദ്രം മുന്നറിയിപ്പു നൽകി

കേരളത്തിൽ ആൾക്കൂട്ടങ്ങളും ആശങ്കകളും ഒഴിവാക്കേണ്ട സാഹചരൃം നിലവിലില്ലെന്നും മന്ത്രി പറഞ്ഞു

കൊറോണ വൈറസിനെ നിയന്ത്രിക്കാൻ ആശുപത്രികളെ സജ്ജമാക്കാനും പകരുന്നത് നിയന്ത്രിക്കാനും പരിസ്ഥിതി ശുചീകരണത്തിനും മറ്റ് മുൻകരുതലുകൾക്കും ആശുപത്രി ജീവനക്കാർക്ക് പരിശീലനം നൽകുന്നതാണ് പരിപാടി

കുറഞ്ഞ താപനിലയിൽ വൈറസ് പടരാൻ സാധ്യതയുണ്ടെന്നത് തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കൊറോണ വൈറസ് വായുവിലൂടെ പടരില്ലെന്നും രോഗിയുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് മറ്റൊരാളിൽ എത്തുന്നതെന്നും അദ്ദേഹം അറിയിച്ചു

പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യമുയർത്തി സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു രാജ്യസഭാ അധ്യക്ഷന്റെ മുന്നറിയിപ്പിനു ശേഷവും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ സഭാ നടപടികൾ ക അവസാനിപ്പിക്കുകയായിരുന്നു

കോൺഗ്രസും ഡി

യും തൃണമുൽ കോൺഗ്രസും ഇടതുപാർട്ടികളും അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ മുദ്രാവാക്യമുയർത്തി സഭയുടെ നടുത്തളത്തിലിറങ്ങി സീറ്റുകളിലേക്ക് മടങ്ങണമെന്ന സഭാധ്യക്ഷന്റെ അഭ്യർത്ഥന പ്രതിപക്ഷാംഗങ്ങൾ അനുസരിക്കാത്തതിനെ തുടർന്ന് സഭാ നടപടികൾ നിർത്തിവയ്ക്കുകയായിരുന്നു

രാജ്യസഭയിൽ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമ്പത്തിക രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

അസ്സം രാജസ്ഥാൻ മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ദ സീറ്റുകളിലും തെലങ്കാന ഹരിയാന ഛത്തീസ്ഗഡ് ഝാർഖണ്ഡ് എന്നിവിടങ്ങളിൽ രണ്ട് സീറ്റുകളിലേക്ക് വീതവും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്

സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹർജിയിലാണ് സ്റ്റേ

ഇന്നലെ അർദ്ധരാത്രിയിലാണ് അമിത വേഗതയിലായിരുന്ന കാർ ദേശീയപാതയിലെ ഡിവൈഡറിൽ ഇടിച്ച ശേഷം മറ്റൊരു കാറുമായി കൂട്ടിമുട്ടിയതെന്ന് പൊലീസ് പറഞ്ഞു

എൽ എ മാരിൽ ഒരാൾ രാജിവച്ചു

തന്റെ മണ്ഡലം നേരിടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് തീരുമാനമെന്ന് രാജിക്കത്തിൽ അദ്ദേഹ്ലൂട്ട് അറിയിച്ചു എന്നാൽ ഇതുവരെ രാജിക്കത്ത് ലഭിച്ചിട്ടില്ലെന്ന് സ്പീക്കർ എൻ

അതേസമയം കാണാതായ്ക്കുറ്റൊരു ഭരണകക്ഷി എം എൽ എ ബിഷുലാൽ സിങ്ങിന്റെ മുകൻ പിതാവിനെ കാണാനില്ലെന്ന് കാണിച്ച് പോലീസിൽ പ്പരാതി നൽകി

എ രഘുരാജ് കൻസാന സ്വതന്ത്ര എം

കോൺഗ്രസ്സിനുള്ളിലെ തർക്കമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ബിജെപിയുടെ വിശദീകരണം

ആയൂർവേദ മേഖലയിലെ വിദഗ്ധർ വ്യാപാരികൾ തുടങ്ങിയവർ മേളയിൽ പങ്കാളികളാകും

ഗ്ലോബൽ ആയൂർവേദ ്ഫെസ്റ്റിവലിന് മുന്നോടിയായി ഇന്നലെ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ചു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രഥമ അന്താരാഷ്ട്ര ആയൂഷ് നിക്ഷേപക സമ്മേളനം ഈ വർഷം ന്യൂഡൽഹിയിൽ നടക്കുമെന്ന് ആയുഷ് മന്തി ശ്രീപദ് നായിക് അറിയിച്ചു പ്രധാനമന്ത്രി സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

തെലങ്കാന ഐ ടി മന്ത്രി കെ താരക രാമറാവുവിന്റെ ഉടമസ്ഥതയിലുള്ള ഫാം ഹൌസിന്റെ ദൃശ്യങ്ങൾ പകർത്താനാണ് രേവാന്ത് റെഡ്ഡി ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചത്

ഇതോടെ ബാങ്കിൽ നിന്നും നിക്ഷേപകർക്ക് അൻപതിനായിരം രൂപ വരെ മാത്രമേ ഒരു മാസത്തിനുള്ളിൽ പിൻവലിക്കാൻ കഴിയുകയുള്ളൂ ഏപ്രിൽ മൂന്നുവരെയാണ് നിയന്ത്രണം കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് ഉത്തരവിറക്കിയത് എന്നാൽ ആരോഗ്യാവശ്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസം വിവാഹം തുടങ്ങി അടിയന്തര ഘട്ടങ്ങളിൽ കൂടുതൽ തുക പിൻവലിക്കാവുന്നതാണ്

അതിർത്തി ജില്ലകളിലെ ബങ്കർ നിർമാണവും ജമ്മു ഡിവിഷമ്പിലെ മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചേർന്ന ഡെപ്യൂട്ടി കൃമ്മ്ട്രീഷ്ണർമാരുടെ യോഗത്തിലാണ് അദ്ദേഹം ന്റിർദ്ദേശം നൽകിയത്

നിലവിൽ വിവരാവകാശ കമ്മീഷണറുടെ ചുമതല വഹിക്കുകയായിരുന്നു അദ്ദേഹം

കേന്ദ്രമന്ത്രി ഹർസിമ്രത്ത് കൌർ ബാദലിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന മന്ത്രിതല സമിതിയുടെ യോഗത്തിലാണ് പദ്ധതികൾക്ക് അനുമതി നൽകിയത്

പുരുഷ സിംഗിൾസിന്റെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ പ്രഗ്നേഷ് ഗുണേശ്വരൻ ക്രൊയേഷ്യയുടെ ബോർണാ ഗോജൊയുമായി ഏറ്റുമുട്ടും